ജെ പിയുടെ ദേശീയതല അംഗത്വ വിതരണ പരിപാ ടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ തുട ക്കമിട്ടു

ഭൂമിയിൽ ഉടമസ്ഥാവകാശ്യ ഇല്ലാത്ത എല്ലാ കർഷകർക്കും ആനുകൂല്യങ്ങൾ നൽകാൻ നിയമഭേദഗതി കൊണ്ടുവരു മെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ കാരുണ്യ ബെനവുലന്റ് പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി

ഔപചാരിക ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും കേരകേരളം സമൃദ്ധകേരളം പദ്ധതിക്ക് ഇന്ന് തുടക്കമാവും ലോക്കപ്പ് ക്രിക്കറ്റിലെ ആദ്യഘട്ടമത്സരങ്ങൾ ഇന്ന് സമാപി ക്കും ഇന്ത്യ ശ്രീലങ്ക മത്സരം ഉച്ചകഴിഞ്ഞ് മൂന്നിന്

ജെ പിയുടെ ദേശീയതല അംഗത്വ വിതരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്തു

ദീൻദയാൽ ഉപാധ്യായ ട്രേഡ് സെന്ററിൽ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ശേഷമാണ് അംഗത്വ വിതരണത്തിന് അദ്ദേഹം തുടക്കമിട്ടത്

ഓൺലൈൻ വഴിയും മൊബൈൽ മിസ്ഡ് കോൾ വഴിയും നേരിട്ട് അപേക്ഷാഫോം നൽകിയും അംഗത്വമെടുക്കാം

ഉത്തർപ്പ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് ജെപി നദ്ദ തുട ങ്ങിയ നേതാക്കളും പ്രധാനമ്ന്ത്രീക്കൊപ്പമുണ്ടായിരുന്നു ക്ഷേത്രനഗരിയിലെ വൃക്ഷവൽക്കരണ പരിപാടി ആനന്ദ് കാനന് പ്രധാനമന്ത്രി തുടക്കമിട്ടു

ശ്യാമപ്രസാദ് മുഖർജി ദേശീയോദ്ഗ്ര ഥനത്തിന് ന്ൽകിയ സംഭാവനകൾ എക്കാലത്തും സ്മരിക്കപ്പെ ടുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു വിദ്യാഭ്യാസ വിചക്ഷണനും ദേശീയവാദിയുമായിരുന്നു മുഖർജിയെന്ന് മോദി അനുസ്മരിച്ചു ഭൂമിയിൽ ഉടമസ്ഥാവകാശം ഇല്ലാത്ത എല്ലാ കർഷകർക്കും ആനുകൂലൃങ്ങൾ ലഭൃമാക്കാൻ നിയമഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു ക്രഡിറ്റ് കാർഡുകൾ മുഴുവൻ കർഷകർക്കും ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു

കർഷകർക്ക് ലഭി ക്കുന്ന വായ്പാ ഇളവുകൾ അനർഹർ തട്ടിയെടുക്കുന്ന സ്ഥിതി യുണ്ടെന്നും ഇക്കാര്യം റിസർവ്വ് ബാങ്കിന്റെ ശ്ര്ദ്ധയിൽ പെടു ത്തുമെന്നും മന്ത്രി പറഞ്ഞു കാർഷിക സ്യർണ പ്രവായ്പകൾ കിസാൻക്രഡിറ്റ് കാർഡ് മുഖേന മാത്രമേ നൽകാവൂ എന്നും അദ്ദേഹം നിർദേശിച്ചു കേന്ദ്ര ബജറ്റിൽ കർഷകർക്ക് സഹായം നൽകുന്ന ഒരു പദ്ധതിയുമില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി കണ്ണൂർ ആന്തൂരിൽ ആത്മഹിത്യ ചെയ്ത പ്രവാസി സംരംഭ കൻ സാജന്റെ കൺവെൻഷ്ൻ സെന്ററിന് പ്രവർത്തനാനുമതി നൽകാൻ തദ്ദേശഭരണവകുപ്പ് അഡീഷണൽ സെക്രട്ടറി നിർദേശം നൽകി കെട്ടിടവുമായി ബന്ധപ്പെട്ട ചട്ടലംഘനങ്ങൾ പരിഹരിച്ചുവെന്ന് ഉറപ്പുവരുത്തണമെന്നും നഗരസഭാ സെക്രട്ട റിക്ക് നിർദേശമുണ്ട് ചീഫ് ടൌൺപ്പാനർ അടങ്ങിയ സംഘം കെട്ടിടത്തിൽ കണ്ടെ ത്തിയ നാല് പിഴ്വുകളിൽ മൂന്നണ്ണവും പരിഹരിച്ചതായി പാർഥാ ബിൽഡേഴ്സ് നഗരസഭയെ അറിയിച്ചു ശേഷിക്കുന്ന ഒന്നിൽ ഇളവ് തേടി മന്ത്രി എ സി മൊയ്തീന് അപേക്ഷ നൽകിയിട്ടുണ്ട്

ഇതിന് ശേഷമായിരിക്കും പ്രവർത്തനാനുമതി നൽകുന്നത് പാവപ്പെട്ട വർക്ക് ചികിത്സ ലഭ്യ മാക്കുന്ന കാരുണ്യ ബെനവലന്റ് പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു

പദ്ധതി നടപ്പാക്കാൻ ഗവൺമെന്റിന് ഒരു നയാപൈസ പോലും ചെലവ് വരുന്നില്ല യുഡിഎഫ് ഗവൺമെന്റ് നടപ്പാ ക്കിയ പദ്ധതി ലക്ഷക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമായി രുന്നുവെന്നും ഉമ്മൻചാണ്ടി ഓർമിപ്പിച്ചു ഇതിന് പകരംവെ യ്ക്കാൻ രാജ്യത്ത് മറ്റൊരു പദ്ധതിയില്ല കാരുണ്യ പദ്ധതി നിർത്തലാക്കിയതോടെ മെഡിക്കൽ കോളജുകളിൽ പല പ്രധാന ഓപ്പറേഷനുകളും പണമില്ലാത്തതിന്റെ പേരിൽ നിലച്ചിരിക്കയാ ണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു പച്ചതേങ്ങയുടെ തൊണ്ട് ശേഖരിച്ച് ക്യർബോർഡിന് നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് നടപട്ടി സ്പീക്രിക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു വിള ഇൻഷൂറൻസ് പദ്ധതി മുഴുവൻ കർഷകരിലേക്കും എത്തിക്കാൻ നടപടി തുടങ്ങിയതായും അദ്ദേഹം അറിയിച്ചു് കേരഫെഡിന്റെ പച്ച തേങ്ങ സംഭരണത്തിന്റെ സംസ്ഥാന്തല ഉദ്ഘാടനം കോഴി ക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ പൊളിച്ചു മാറ്റണമെന്ന സുപ്രീം കോടതി വിധി നട പ്പാക്കു മെന്നും ഇതിന് ഗവൺമെന്റിന്റെ സഹായം തേടിയതായും മരട് നഗരസഭാ അധി കൃതർ കൊച്ചിയിൽ അറിയിച്ചു അഞ്ചു ഫ്ളാറ്റുകൾ പൊളിക്കാൻ ഉത്തരവിട്ടതിനെതിരെ ഫ്ളാറ്റ് ഉടമകൾ നൽകിയ ഹർജി ഇന്നലെ സുപ്രീംകോടതി തള്ളിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാൻ നഗരസഭ തയ്യാറെടുക്കുന്നത്

ഇതിനെതിരെ ഫ്ളാറ്റ് ഉടമകൾ അവധികാല ബെഞ്ചിൽ നിന്നും സ്റ്റേ വാങ്ങിയിരുന്നു ഇതിനെ രൂക്ഷമായി വിമർശിച്ച സുപ്രീംകോ ടതി ഫ്ളാറ്റുകൾ പൊളിച്ചുമാറ്റാൻ ഉത്തരവിടുകയുമായിരുന്നു

സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് കരിപ്പൂരിൽ തുടക്കമായി മുഖ്യ മന്ത്രി പിണറായി വിജയൻ വൈകീട്ട് ക്യാമ്പിന്റെ ഒദ്യോഗിക ഉദ്ഘാടനം നിർവ്വഹിക്കും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ആദ്യ ഹജ്ജ് സർവീസ് നാളെയാണ്

കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതിയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും

ജോസ് കെ മാണിക്കെതി രായ നിയമ നടപടികളും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ജന പ്രതിനിധികൾക്കെതിരായ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ സാധ്യതകളും യോഗും ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി പിളർത്തിയ സ്റാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട ഭാവി നിലപാ ടുകൾ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും കേര കേരളം സമൃദ്ധകേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴി ക്കോട്ട് നിർവഹിക്കും വേങ്ങേരിയിലെ കാർഷിക വിപണന കേന്ദ്രത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്

പത്ത് വർഷം കൊണ്ട് രണ്ട് കോടി മികച്ച ഇനം തെങ്ങിൻ തൈകൾ എല്ലാ വാർഡുകളിലും വിതരണം ചെയ്യാനാണ് പരി പാടി തൃശൂർ പൊന്നാനി കോൾ നിലങ്ങളുടെ പുറംബണ്ടുകളിൽ അനുയോജ്യമായ തെങ്ങിൻതൈകൾ വ്യാപകമായി വെച്ചു പിടി പ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും പ്രത്യേക പ്രിപാടി തയ്യാ റാക്കിയിട്ടുണ്ട് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ പൻ വർധന കേന്ദ്ര ബജറ്റിൽ ഇന്നലെ പെട്രോളിനും ഡീസ്ലിനും ഇന്ധന എക്സൈസ് തീരുവ റോഡ് സെസ് ഇനങ്ങളിൽ ഒരു രൂപ വീതം വർധിപ്പിക്കുമെന്ന് ധനമന്ത്രി നിർമലാ സീതാരാമൻ പ്രഖ്യാപിച്ചി രുന്നു

ബജറ്റിൽ ചുമത്തിയ അധിക നികുതിക്ക് പുറമെ സംസ്ഥാന നികുതി കൂടി വരുന്നതിനാലാണ് ഈ വർധന ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യഘട്ട മത്സരങ്ങൾ ഇന്ന് സമാപി ക്കുന്നതോടെ ഉസമി ഫൈനൽ നിര വ്യക്തമാകും ഇന്ന് രണ്ട് മത്സരങ്ങളാണുള്ളത് ലീഡ്സിൽ ഉച്ചകഴിഞ്ഞ് മൂന്നിന് ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും മാഞ്ചസ്റ്ററിൽ വൈകിട്ട് ആറിന് ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് രണ്ടാം മത്സരം

ദക്ഷി ണാഫ്രിക്കയോട് ഓസ്ട്രേലിയ തോൽക്കുകയും ഇന്ത്യ ഒന്നാമ തെത്തുകയും ചെയ്താൽ ന്യൂസിലാന്റാകും സെമിയിൽ ഇന്ത്യ യുടെ എതിരാളി ഓസ്ട്രേലിയ ജയിച്ചാൽ ആതിഥേയരായ ഇംഗ്ല ണ്ടിനെയാകും സെമിയിൽ ഇന്ത്യ നേരിടുക വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം കൊല്ലം ഓച്ചിറയിൽ ആരംഭിച്ചു ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടന സഭയ്ക്ക് സാമി ജ്ഞാനാമൃതാനന്ദപുരി ഭദ്രദീപം തെളിച്ചു

സമ്മേളനം നാളെ സമാപിക്കും താനൂരിനും പരപ്പനങ്ങാടിക്കും ഇട്യിൽ ചിറക്കൽ ഭാഗത്ത് പാളത്തിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് ട്രെയിനുകൾ വൈകി

ഇതേ തുടർന്ന് പാസഞ്ചർ ട്രെയിൻ സംഭ വസ്ഥലത്ത് പിടിച്ചിട്ടു പാളത്തിലെ വിളളൽ പരിഹരിച്ച് ഗതാഗ തം പുനഃസ്ഥാപിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിൽ സി

എം പ്രവർത്ത കനെ കൊലപ്പെടുത്തിയ കേസിൽ ഒൻപത് ബി

പി ആർ

എസ് പ്രവർത്തകർക്ക് തലശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു

പി നൌഷയെയാണ് ്വയനാട് ഡിഎംഒ അമ്പേഷണ വിധേയമായി സർവ്വീസിൽ നിന്നും സസ്പെന്റ് ചെയ്തത് പുൽപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ മാത്രം ആറ് പേർക്ക് ഡെങ്കിപ്പനി സ്ഥീരീകരിച്ചിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ഇയാൾ ഗുരുതര കൃത്യവിലോപം കാണിച്ചതായി പരാതിയുയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി ഭൂഗർഭ ജലവിതാന സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം കാസർകോട് ജില്ലയുടെ നില പരിതാപകരമാണെന്നും ജലസുര ക്ഷയ്ക്കായി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കണ്മെന്നും കേന്ദ്ര ജലശക്തി അഭിയാൻ പ്രതിനിധിയും രാജ്യരക്ഷാ മന്ത്രാലയ സെക്രട്ടറിയുമായ അശോക് കുമാർ സ്വിംഗ് നീർദ്ദേശിച്ചു